മറ്റന്നാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രങ്ങൾ ്രാജ്യത്ത് അൻപതിനാ യിരം കടന്നു

കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമ നിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുന്നു

തുടക്കം

കെ മോഹൻ ബഗാനും തമ്മിൽ ഉദ്ഘാടന മത്സരം

സൌദി രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്

ക്ടോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനായി സ്വീകരിച്ച തയ്യാറ്റെടുപ്പുകൾ തൊഴിലവസരങ്ങൾ പുനഃസൃഷ്ടിക്കുന്ന്തിനായി സ്വീകരിച്ച നടപടികൾ തുടങ്ങിയവ ലോക്ന്റേതാക്കൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

എല്ലാ വിധത്തിലുള്ള തീവ്രവാദത്തെയും ശക്തമായി അപലപിക്കുന്നതായും രാഷ്ട്രങ്ങൾ വിശദ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

അതിർത്തി കടന്നുള്ള ആക്രമണം അടക്കമുള്ള എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായി ഇന്തൃയും യൂറോപ്യൻ യൂണിയനും വൃക്തമാക്കി പന്ത്രണ്ടാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഭീകരവാദ വിരുദ്ധ സംഭാഷണം ഇന്നലെ വെർച്ചൽ രീതിയിൽ നടന്നിരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപ്രധാന സഹകരണ രംഗ്ലത്തെ പ്രധാന വിഷയങ്ങളിലെ പ്രവർത്തനം അടക്കുമുള്ള്വ യോഗത്തിൽ ചർച്ചയായി യൂറോപ്യൻ യൂണിയൻ ആ്ഗരാഷ്ട്രങ്ങളിൽ അടുത്തിടെയുണ്ടായ ഭീകരവാദ്യ്ക്ക്കമണങ്ങളെ ഇന്ത്യ അപലപിച്ചു

മുംബൈ പത്താൻക്ടോട്ട് പുൽവാമ ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് യൂറോപ്യൻ യൂണിയൻ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേ ണ്ടതിന്റെ ആവശ്യകതയും ഇരു വിഭാഗവും വ്യക്തമാക്കി ഹിംസാത്മക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന വരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരേണ്ടത് അത്യന്താ പേക്ഷിതമാണെന്ന് ഇരുവിഭാഗവും അഭിപ്രായപ്പെട്ടു തങ്ങൾക്ക് കീഴിലുള്ള ഭൂപ്രദേശത്ത് തീവ്രവാദപ്രവർത്തനങ്ങൾ നടക്കുന്നി ല്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തി ന്യൂസ് ഡെസ്ക് ആകാശവാണി

വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മാർഗ്ഗ നിർദ്ദേശങ്ങൾ തയ്യാറാണെന്ന് ഫിക്കിയുടെ വെർചൽ പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ആദ്യം വാക്സിൻ നൽകുക

കോവിഡ് പശ്ചാത്തല ത്തിൽ വാർഡടിസ്ഥാനത്തിൽ നിശ്ചയിച്ച സമയക്രമമനുസരി ച്ചാണ് പരിശോധന മുക്യിക്ക്പ്പാലിറ്റി ബ്ലോക്ക് ഗ്രാമപഞ്ചായ ത്തുകൾ എന്നിവിടങ്ങ്ളീളില്ല പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അതത് റിട്ടേണിംഗ് ഓഫ്ീസർമാരുടെ ഓഫീസിലും ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും അതത് ജില്ലാ ആസ്ഥാനത്തുമാണ് നടക്കുന്നത്

പ്രധാനമായും തദ്ദേശ സ്വയം ഭരണ സ്ഥാപങ്ങളിലേ ക്കുള്ള തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക യെന്ന് ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്ന് അദ്ദേഹം മാധ്യമ ങ്ങളോട് പറഞ്ഞു ഇതു സംബന്ധിച്ച വാർത്തകൾ മാധൃമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു

ടി

ഗോവയിലെ മൂന്ന് വേദികളിൽ കാണികൾക്ക് പ്രവേശനമില്ലാതെയാണ് എല്ലാ മത്സരങ്ങളും നടക്കുക

എഫ്

ഇതുസംബന്ധിച്ച വാർത്തകളിലെ വിവരങ്ങൾ വസ്തുതാ വിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് ഇ

എഫ്

മാധൃമ റിപ്പോർട്ടിലെ കണക്കുകൾ ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വൃതൃസ്തമാണെന്നും സ്ഥാപനം വൃക്തമാക്കിയതായി മന്ത്രാലയം അറിയിച്ചു

ജല സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട മികവിന്റെ കേന്ദ്രം മോണോ ക്രിസ്റ്റലൈൻ സോളാർ ഫോട്ടോവോൾട്ടായിക് പാനൽ ഉല്പാദന യൂണിറ്റ് എന്നിവയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും കൂടാതെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയിലെ കായിക സമുച്ചയവും അത്യാധുനിക ഗവേഷണകേന്ദ്രവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ഇതോടെ ഇന്ത്യയിലെ റുപ്പെ ശൃംഖല ഉപയോഗപ്പെടുത്താൻ ഭൂട്ടാൻ പൌരന്മാർക്ക് സാധിക്കും ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്ക് സന്ദർശനവേളയിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും

സാധാരണക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിനും കച്ചവട ആവശ്യങ്ങൾക്കായുള്ള ചരക്ക് ഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങളും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്താൽ റെയിൽവേയുടെ അടിസ്ഥാനസൌകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്തുത്താൻ സാധിക്കുമെന്നും ശ്രീ പിയൂഷ് ഗോയൽ വ്യക്തമാക്കി